ഇലവുങ്കൽ നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ നിലവിൽ വന്നു

കെ ബാലൻ

രാമൻ നായരെ ബി ജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയമിച്ചു

ഇലവുങ്കൽ നിലക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ അർധരാത്രി നിരോധനാജ്ഞ നിലവിൽ വന്നു മറ്റ നാൾ അർധരാത്രി വരെ നിരോധനാജ്ഞ തുടരും

നിലക്കലിലേക്ക് പ്രധാന വഴികളിൽ ബാരിക്കേഡ് ഉയർത്തി കർശന പരിശോധനയ്ക്ക് ശേഷ മാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത് സ്വകാര്യ വാഹനങ്ങൾക്ക് നിലക്കൽ വരെ മാത്രമായിരിക്കും പ്രവേശനം കാൽനട യാത്രക്കാരായ അയ്യപ്പ ഭക്തൻമാർ ഒഴികെ തീർഥാടകർക്ക് കെ എസ് ആർ ടി സി ടിക്കറ്റ് നിർബന്ധമാക്കി നാളെ വൈകീട്ട് അഞ്ചിന് നട തുറക്കും മറ്റന്നാൾ രാത്രി പത്തിന് പൂജാകർമങ്ങൾ പൂർത്തിയാക്കി നട അടയ്ക്കും ശബരിമല നാളെ തുറന്ന് മറ്റന്നാൾ അടയ്ക്കുംവരെ യുവതികൾ പ്രവേശി ക്കാതിരിക്കാൻ ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കുമെന്ന് രാഹുൽ ഈശ്വർ മലപ്പുറത്ത് പറഞ്ഞു അയപ്പ ഭക്തസമിതി സംഘടിപ്പിച്ച ഭക്തജന കൂട്ടായ്മ യിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ നട അടക്കുന്നതിനകം ആക്ടിവി സ്റ്റുകളായ യുവതികളെ മലയിൽ കൊണ്ടു വരാൻ ശ്രമിക്കുന്നത് നിരീശ്വര വാദം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്നും രാഹുൽ ഈശ്വർ കുറ്റപ്പെടുത്തി പന്തളം കൊട്ടാരം നിർവാഹക സമിതി അധ്യക്ഷൻ പി ജി ശശികുമാര വർമ കെ

എ ഖാദർ എം

ശബരിമല വിഷയത്തിൽ എൻ എസ് എസുമായി ഗ്വൺമെന്റ് ചർച്ചയ്ക്ക് കളമൊരുക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി യുവതി പ്രവേ ശന കാര്യത്തിൽ ഗവൺമെന്റിന്റെ നടപടികളിൽ എൻ

എസിന്റെ തെറ്റി ദ്ധാരണ തിരുത്താനാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എൻഎസ്എസ് ഓഫീസിന് നേരെയു ണ്ടായ അക്രമം ആസൂത്രിതമാണെന്നും കടകംപള്ളി വിലയിരുത്തി ശബരിമലയെ കലാപഭൂമി ആക്കാനുള്ള ഗവൺമെന്റ് നീക്കത്തിൽ പ്രതിഷേ ധിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പത്തനംതിട്ടയിൽ സായാഹ്ന ധർണ നടത്തും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ധർണ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ ബെന്നിബെഹനാൻ തുടങ്ങിയവർ പങ്കെടുക്കും ഭക്തരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ സ്ഥാനത്തിരിക്കാൻ യോഗ്യന ല്ലെന്ന് മുൻദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പത്ത നംതിട്ടയിൽ പറഞ്ഞു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ പത്മകുമാർ രാജി വെക്കണമെന്നും അദ്ദേഹം ആവശൃപ്പെട്ടു

ദേവസ്വം ബോർഡും ഗവ്ൺമെന്റും ഭക്തരെ വെല്ലുവിളിക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും പ്രയാർ ആവശ്യപ്പെ ട്ടു അവിശ്വാസികൾക്കു വേണ്ടി സി

എം അയ്യപ്പനെ പോലും വെല്ലുവി ളിക്കുകയാണെന്ന് കോൺഗ്രസ് വർക്കിങ് പ്രസിഡന്റ് കെ സുധാകരൻ കാഞ്ഞ ങ്ങാട്ട് കുറ്റപ്പെടുത്തി

വിശ്വാസികൾ ആരായാലും ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ തയാറാകില്ലെന്നും സുധാകരൻ പറഞ്ഞു കേരളത്തിലെ ദൈവങ്ങളിൽ വർണ സ്വഭാവമില്ലാത്ത ഏകദൈവമാണ് ശബ രിമല അയ്യപ്പനെങ്കിലും അവിടെ ആർക്കും ചവിട്ടിക്കയറാമെന്ന് ധരിക്കരുതെന്ന് എം

എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോ ഫസൽഗഫൂർ പറഞ്ഞു തിരൂരിൽ എം ഇ എസ് സംസ്ഥാന അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഫസൽഗ ഫൂർ അനാചാരങ്ങളും ജാതി വൃവസ്ഥയും തിരിച്ചുവരാതിരിക്കാൻ ക്ഷേത്രപ്രവേ ശന വിളംബരമടക്കം നവോത്ഥാന മുന്നേറ്റങ്ങളെ ഓർമപ്പെടുത്തേണ്ടത് അനി വാര്യതയാണെന്ന് മന്ത്രി എ

നവോത്ഥാന മൂല്യ ങ്ങൾ മറക്കുന്ന ചിലർ മത നിരപേക്ഷതയും സമാധാനവും തകർക്കാൻ ശ്രമി ക്കുകയാണെന്നും മന്ത്രി പാലക്കാട് കുറ്റപ്പെടുത്തി ഈ മാസം പത്തിന് തുട ങ്ങുന്ന ക്ഷേത്രപ്രവേശന വാർഷികാഘോഷത്തിന്റെ സംഘാടകസമിതി യോഗം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ കെ ബാലൻ നവോത്ഥാന സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ വീണ്ടും സവർണ മേധാവിത്വത്തിന് അടിയറ വെക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി ഇ ച ന്ദ്രശേഖരൻ കാസർകോട്ട് പറഞ്ഞു വർത്തമാന കാലത്തെ നന്മകൾ സ്വാംശീ കരിച്ചെടുക്കാൻ യുവതലമുറ തയാറാകണമെന്നും മന്ത്രി നിർദേശിച്ചു ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ വാർഷികാഘോഷത്തിന്റെ സംഘാടകസമിതി യോഗം കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻപ്രസിഡന്റ് ജി രാമൻനായരെ ബി ജെ

കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന ജി രാമൻനായരും ഐ എസ് ആർ ഒ മുൻചെയർമാൻ ജി

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ബി ജെ പി യിൽ ചേർന്നത്

ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ വധഭീ ഷണി ലഭിച്ചതായി പാർട്ടി കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു മഹാരാ ഷ്ട്രയിൽ നിന്ന് സ്പീഡ് പോസ്റ്റിലാണ് മോഹൻ കെ നായർ എന്നയാളുടെ പേരിൽ ഭീഷണിക്കത്ത് ലഭിച്ചത് കാസർകോട്ട് നിന്ന് ഈ മാസം എട്ടിന് ആരം ഭിക്കുന്ന ശബരിമല സംരക്ഷണ രഥയാത്രയിൽ പങ്കെടുത്ത് ശ്രീധരൻപിള്ളയെ വധിക്കു മെന്നാണ് കത്തിന്റെ ഉള്ളടക്കം സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയെ ഭീഷണിക്കത്ത് ലഭിച്ച വിവരം അറിയിച്ചതായി പാർട്ടി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഡിസംബർ ഴ് ന് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഉച്ച കഴി ഞ്ഞ് വിമാനത്താവളത്തിൽ അവലോകന യോഗം ചേരും ഇൻസ്ട്രുമന്റ് ലാന്റിങ് സംവിധാനത്തിന്റെ പരിശോധനയ്ക്ക് ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിങ് വിമാനം വിമാനത്താവളത്തിൽ പരീക്ഷണപ്പറക്കൽ നടത്തും കോഴിക്കോട് കണ്ണൂർ ദേശീയ പാതയിലെ കോരപ്പുഴ പാലം പുതുക്കിപ്പണി യുന്നതിന് സാങ്കേതികാനുമതി ലഭിച്ചു

മൂന്ന് ലോക്സഭാ സീറ്റിലും രണ്ട് നിയമസഭാ സീറ്റി ലുമായിരുന്നും ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ്

വിരാട്കോലിക്ക് വിശ്രമം നൽകിയതോടെ രോഹിത് ശർമയാണ് ഇന്ത്യയെ നയിക്കുന്നത് കാർലോസ് ബ്രാത്ത്വൈറ്റ് വെസ്റ്റിൻഡീസ് ക്യാപ്റ്റനും ഋഷഭ് പന്താണ് ധോണിക്ക് പകരം വിക്കറ്റ് കീപ്പർ ഐഎസ്എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ്

സി ആറുകളികളിൽ അഞ്ചിലും തോറ്റ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ദേശീയ ടെന്നീസ് വോളിബോൾ ചാംപ്യൻഷിപ്പിൽ കേരള പുരുഷ ടീമിനെ വയനാട് ജില്ലയുടെ അജിത് വി

മഹാരാഷ്ട്രയിലെ ഷോളാപൂരിലാണ് മത്സരം ദേശീയ ചെസ് ചാംപ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിൽ ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർഥികൾ ഇടം നേടി

ബി ശ്രീധന്യ എന്നിവരാണ് ടീമിൽ ഉൾപെ ട്ടത് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ആരം ഭിക്കുന്ന ലഹരി മോചനകേന്ദ്രങ്ങളിൽ ആദ്യത്തേത് കൊല്ലം ജില്ലയിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കു മെതിരായ നടപടികൾ ഗവൺമെന്റ് ശക്തമാക്കുമെന്ന് മന്ത്രി ടി

വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നവരെ പിടികൂടാൻ അതത് മേഖലകളിലെ ജനങ്ങളും സഹ കരിക്കണമെന്ന് മന്ത്രി നിർദേശിച്ചു

വൈകീട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

ടൂറിസം വകുപ്പ് വാവ് വാണി ഭത്തെ പൈതൃ കോത്സവമായി അംഗീകരിച്ചിട്ടുണ്ട് കുറ്റിക്കാട് ക്ഷേത്രത്തോട് ചേർന്ന കളത്തിലായിരുന്നു ആദ്യകാലത്ത് വാവ് വാണിഭം ഉൽപന്ന രൂപമാതൃകാ രംഗത്ത് സംസ്ഥാനത്തെ ഏക നൈപുണ്യവികസന സ്ഥാപനമായ കൊല്ലത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൈനിനെ അന്തർ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി ടി

സ്ഥാപനത്തിലെ പ്രഥമ ബിരുദദാന ചടങ്ങ് ഉദ്ഘാട്നം ചെയ്യുകയായി രുന്നു മന്ത്രി ഇടുക്കി ജില്ലയിലെ പ്രളയക്കെടുതി പുനരധിവാസ പ്രവർത്തനങ്ങൾ ത്രിതല പഞ്ചാത്ത് പ്രസിഡന്റുമാരുടെ യോഗം അവലോകനം ചെയ്തു പ്രകൃതി ദുര ന്തങ്ങളിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് ഗവൺമെന്റ് സഹായം വേഗ ത്തിൽ ലഭ്യമാക്കാൻ നടപടിയെടുക്കുന്നതിന് യോഗം തീരുമാനിച്ചു ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി ലഹരിയില്ലാത്ത മലപ്പുറം ടേബിൾടോക് പരിപാടി സംഘടിപ്പിച്ചു ലഹരി വസ്തുക്കൾക്കെതിരെ ശക്ത മായ ബോധവത്കരണവും ചിട്ടയായ പ്രവർത്തനവും നടത്താൻ എല്ലാ ജനവി ഭാഗങ്ങളും രംഗത്തു വരണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത വിമുക്തി മിഷൻ ജില്ലാ കോ ഓർഡിനേറ്റർ ഹരികുമാർ ആഹ്വാനം ചെയ്തു